സ്റ്റാർട്ട് അപ്പ് പദ്ധതികൾ വൃവസായ പാർക്ക് കോർപ്പറേറ്റ് നിക്ഷേപ വർദ്ധനവ് തുടങ്ങിയവയ്ക്ക് ഊന്നൽ

ചെറുകിട ഉത്പന്നങ്ങൾക്ക് ഒഴികെ മറ്റെല്ലാ വസ്തുക്കൾക്കും രണ്ട് ് വർഷത്തെ പ്രളയ സെസ് സ്വർണ്ണം സിമന്റ് ഗ്രാള്ളെറ്റ് എ സി തുടങ്ങിയവയ്ക്ക് വില വർദ്ധിക്കും

മൂല്യവർദ്ധിത റബ്ബ്ർ ഉത്പന്നങ്ങൾക്ക് സിയാൽ മോഡൽ കമ്പനി

പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനവിരുദ്ധമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള

പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും അടിസ്ഥാന ആവശൃങ്ങൾ ഉറപ്പാക്കുന്ന നവ ഇന്തൃയിലേയ്ക്കുള്ള പ്രയാണത്തിലാണ് ഗവൺമെന്റെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ന്യൂസിലന്റിനെതിരായ നാലാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി കിവീസിന് എട്ട് വിക്കറ്റ് ജയം

ഗതാഗതം അടുത്ത രണ്ടു വർഷം കൊണ്ട് റോഡുകളുടെ മുഖച്ഛായ തന്നെ മാറുന്ന പദ്ധതികളാണ് ധനമന്ത്രി ഡോ തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ചത്

പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഡിസൈനർ റോഡുകളുടെ നിർമ്മാണ്ണുവും ബജറ്റിലുണ്ട്

വിദ്യാഭ്യാസം അടുത്ത വർഷം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നാലാ യിരം കോടി രൂപയുടെ സർവ്വകാല റിക്കോർഡ് ചെലവ് വരു മെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഗവൺമെന്റ് ്ചെലവ് കുറയ്ക്കുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക മുരടിപ്പിന് കാരണമാകുമെന്നും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അഭികാമൃമല്ലെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു കേരള പുനർ നിർമ്മാണത്തിനായി രണ്ടു വർഷത്തേക്ക് പ്രളയ സെസ് ചുമത്താനും ബജറ്റ് നിർദ്ദേശിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കോമ്പോസിഷൻ നികുതി സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ള ചെറുകിട വ്യാപാരികളെയും പ്രളയ സെസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സിനിമാ ടിക്കറ്റ് ആഡംബര ഉൽപന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സ്വർണം വെള്ളി സിമന്റ് ഗ്രാനൈറ്റ് സെറാമിക് ടൈൽസ് പെയിന്റ് പ്ലൈവുഡ് എന്നിവയ്ക്ക് വില ഉയരും ശീതളപാനീയങ്ങൾ ചോക്ലേറ്റ് കാർ ഇരുചക്രവാഹനങ്ങൾ ടൂത്ത്പേസ്റ്റ് സോപ്പ് മൊബൈൽ ഫോൺ ഫ്രിഡ്ജ് എ സി കമ്പ്യൂട്ടർ തുടങ്ങി ഭൂരിഭാഗം വസ്തുക്കൾക്കും വില വർദ്ധിക്കും

ബിയർ വൈൻ ഉൾപ്പെടെ എല്ലാത്തരം മദ്യത്തിനും രണ്ട് ശതമാനം നികുതി വർദ്ധിക്കും സിനിമ ടിക്കറ്റുകളുടെ വിലയുടെ പുറത്ത് പത്ത് ശതമാനം വിനോദ നികുതി ഇൌടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ കൂടുതൽ നികുതി കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കുടിശ്ശിക അടയ്ക്കാനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ വർഷവും തുടരും സംസ്ഥാനത്തെ ഭൂമിയുടെ വിപണി ൃവിലയും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയും പ്രക്ത്മ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനായി ന്യായവില്യുടെ പത്ത് ശതമാനം വർദ്ധിപ്പിക്കും

കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചതായും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി റിനൽ ജോസഫ്

ആഭ്യന്തര കശുവണ്ടി കൃഷി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ആർ

റബ്ബർ മേഖലയുടെ വികസനത്തിനായി സിയാൽ മോഡലിൽ കമ്പനി രജിസ്റ്റർ ചെയ്യും

പാലക്കാട് തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ അത്യാധുനിക റൈസ് പാർക്ക് സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശബരിമല ശബരിമലയിൽ തിരുപ്പതി മാതൃകയിൽ പരമാവധി സൌകര്യ ങ്ങൾ ഒരുക്കാനാണ് ഗവണ്മെന്റ് ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക്

ആർ

കോർപ്പറേഷന്റെ പുനരു ദ്ധാരണത്തിനായി ബാങ്കുകളുമായി ധാരണയായിട്ടുണ്ട്

നിരാശാജനകമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചപ്പോൾ് ജനവിരുദ്ധമെന്നായിരുന്നു ബിജെപിയുടെ നിലപാ വോയിസ് ബജറ്റ് കമന്റ് ഇൻഡ്രോ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ബജറ്റ് ജനങ്ങൾക്ക് പ്രയോജനമാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ബജറ്റിൽ കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതിക ളൊന്നും ഇനിയും പൂർത്തിയായിട്ടില്ലാത്ത സാഹചര്യത്തി ലാണ് അതേ മാതൃകയിൽ ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ച തെന്നും ശ്രീ

ശ്രീധരൻപിള്ള പ്രതികരിച്ചു

ധനമന്ത്രി തോമസ് ഐസക് അവത്തിപ്പിച്ച ഇക്കൊല്ലത്തെ സംസ്ഥാന ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നീൽ കണ്ടുകൊണ്ടുള്ള വാഗ്ദാനങ്ങളുടെ മഹാപ്രളയമാണെന്ന് കെ

സി അദ്ധ്യ ക്ഷൻ മുല്ലപ്പള്ളി രാമചൂന്ദ്ൻ ്നവകേരള നിർമ്മിതിക്കുള്ള വ്യക്തമായ രൂപരേചയും അതിനുള്ള പദ്ധതിവിഹിതം ബജറ്റിലില്ലെന്നും അദ്ദേഹ് അഭിപ്രായപ്പെട്ടു

തോമസ് ഐസക് അവതരിപ്പിച്ചതെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ

സാധാരണക്കാർക്കുമേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വിഭവ സമാഹരണത്തിനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് ക്ഷേമ പെൻഷനുകളിൽ നൂറു രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പാവങ്ങളോടുള്ള ഗവൺമെന്റിന്റെ കരുതലിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു

അടിസ്ഥാന സൌകരൃങ്ങൾ ആരോഗൃ സ്ംരക്ഷണം വിദ്യാഭ്യാസം എല്ലാ പെൺകുട്ടികൾക്കും ന്കൂർക്ഷ് എന്നിവ ലഭ്യമാക്കാനാണ് ഗവ ണ്മെന്റ് പരിശ്രമിക്കുന്ന്ത്തെന്നും രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം

വെങ്കയ്യ നായിഡു നാളെ കേരളത്തിലെത്തും

വി തോമസ് എം

യുടെ വിദ്യാധനം പദ്ധ തിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഇ ബുക്ക് റീഡറുകളുടെ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏഴാമത്തെ കുറഞ്ഞ സ്കോറാണ് ഇത് വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി എന്നിവർ ഇല്ലാ്ട്ടൂത ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗ് നിര കിവീസ് ബ്രൌൾർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു

ശബരിമല വിധി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പുനപരിശോധന ഹർജികളിൽ അടുത്തമാസം ആറുമുതൽ പരമോന്നത കോടതി വാദം കേൾക്കും